കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധികളിൽ നിന്നും പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ രാജ്യത്തിനു സാധിച്ചതായി മൻ ക്ടി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ്

മൻ കി ബാത്തിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം

നിതൃജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന വിദേശനിർമിത വസ്തുക്കളുടെ ഇന്ത്യൻ ബദലുകൾ എന്താണെന്ന് നാം മനസ്സിലാക്കണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ എന്ന് നാം പുതുവർഷത്തിൽ പ്രതിജ്ഞ ചെയ്യണമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു

എല്ലാവർക്കും ആരോഗ്യത്തോടെ തുടരാൻ സാധിക്കട്ടെ എന്നും പ്രധാനമന്ത്രി ആശംസിച്ചു

മാലിനൃങ്ങൾ വലിച്ചെറിയില്ല എന്ന് നാം ദൃഢപ്രതിജ്ഞയെടുക്കണമെന്നും ശ്രീ നരേന്ദ്ര മോദി പറഞ്ഞു കോവിഡ് കാലത്ത് അദ്ധ്യാപകർ സ്വീകരിച്ചിരിക്കുന്ന നൂതനമായ രീതികളും അവർ തയ്യാറാക്കിയ കോഴ്സ് മെറ്റീരിയലുകളും ഓൺലൈൻ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം അമൂലൃമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ കോഴ്സ് മെറ്റീരിയൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻറെ ദീക്ഷ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് അദ്ധ്യാപകര്യോട്ട് അഭ്യർത്ഥിച്ചു

ഡൽഹി മെട്രോയുടെ മജന്ത ലൈനിലായിരിക്കും ട്രെയിൻ സർവീസ് നടത്തുക പൂർണമായും ഓട്ടോമേറ്റഡ് ആയതിനാൽ മാനുഷികമായ തെറ്റുകൾ ഒഴിവാക്കാൻ ഡ്രൈവർ രഹിത ട്രെയിനുകൾക്ക് സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്

മഹാരാഷ്ട്രയിലെ സംഗോളയിൽ നിന്ന് പശ്ചിമ ബംഗാളിലെ ഷാലിമാറിലേക്കുള്ള കിസാൻ ട്രെയിൻ സർവീസ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നാളെ ഉദ്ഘാടനം ചെയ്യുന്നത്

പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്തുന്ന എല്ലാ യൂണിയനുകളും സംയുക്തമായാണ് ഈ തീരുമാനത്തിൽ എത്തിയതെന്ന് സ്വരാജ് ഇന്ത്യ അധ്യക്ഷൻ യോഗേന്ദ്ര യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞു

കൊല്ലപ്പെട്ട ഭീകരവാദികൾ അൽ ബദർ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് ഡിജിപി ദിൽബാഗ് സിംഗ് പറഞ്ഞു

മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഇന്നു മുതൽ വാക്സിൻ വിതരണം തുടങ്ങും എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും വാക്സിൻ ലഭ്യമാക്കിയതായി ഇ യു അധ്യക്ഷൻ അറിയിച്ചു ആദ്യഘട്ടത്തിൽ പതിനായിരത്തോളം ഡോസുകൾ ആണ് ഓരോ രാജ്യത്തിനും നൽകിയിട്ടുള്ളത് യുകെയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ് ഫ്രാൻസിലും സ്പെയിനിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു

എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സിയെ നേരിടും